പൊതുമേഖലാ ബാങ്കുകളുടെ സ്ഥിതി മെച്ചെപ്പെട്ടെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

ഇന്ത്യാ വെസ്റ്റിൻഡീസ് ര ാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റ് ജമൈക്കയിൽ അല്പസമയത്തിനകം ആരംഭിക്കും

പത്ത് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് നാല് വലിയ ബാങ്കുകളാക്കി മാറ്റുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ക്വിത സുനു

യോഗയുടെ പ്രചാരണത്തിനും വികസനത്തിനും മികച്ച സംഭാവന നൽകിയവർക്കുള്ള പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു

തന്റെ ആരോഗ്യത്തിന് കാരണം യോഗയും പ്രാണായാമവും ആയുർവേദവുമാണെന്നും പ്രധാനമന്ത്രി ചൂ ിക്കാട്ടി ആയുഷ് കുടുംബത്തിലേക്ക് മറ്റൊരു പരമ്പരാഗത ചികിത്സാ സമ്പ്രദായമായ സോവ റിഗ്വ കൂടി കടന്നു വന്നതിൽ സന്തോഷമുടെ ന്നും ശ്രീ മോദി പറഞ്ഞു ആയുർവേദം യോഗ പ്രകൃതിചികിത്സ സിദ്ധ യുനാനി ഹോമിയോപ്പതി എന്നിവയ്ക്ക് പുറമേയാണിത്

ഉത്തരവാദിത്വ ഗവൺമെന്റ് ജനകേന്ദ്രീകൃത വികസനം പങ്കാളിത്ത ജനാധിപത്യം എന്നിവ ചേർന്നതാണ് പുതിയ ഇന്തൃയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനു െ ന്ന് അദ്ദേഹം പറഞ്ഞു

കശ്മീർ താഴ്വരയിലെ സൈനിക വിന്യാസവും സുരക്ഷ സ്ഥിതിയും അദ്ദേഹം അവലോകനം ചെയ്യും

നിയന്ത്രണ മേഖലയിൽ ഉടനീളം സുരക്ഷാ സേനയുടെ തയ്യാറെടുപ്പുകൾ അദ്ദേഹം അവലോകനം ചെയ്യും തീവ്രവാദ നുഴഞ്ഞുകയറ്റങ്ങൾക്കെതിരെയുള്ള പ്രവ്യർത്തുനങ്ങൾ അദ്ദേഹം വിലയിരുത്തും

എന്നാൽ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ശ്രീനഗർ നഗരത്തിലും താഴ്വരയിലെ ചിലഭാഗങ്ങളിലും ചെറിയതോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സ്വകാര്യവാഹനങ്ങൾ ഓടി

കശ്മീർ താഴ്വരയിൽ വിവിധ പ്രദേശങ്ങളിൽ ലാൻഡ് ലൈൻ ടെലിഫോൺ ബന്ധം പുനസ്ഥാപിച്ചു

അടിസ്ഥാനമില്ലാത്ത വാർത്തയാണിതെന്നും കേസുകൾ തീർപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നു െ ന്നും ഹൈക്കോടതി വക്താവ് അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കായിക ദ്ദിനൃത്തിൽ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച പരിപാടി ജമ്മു മേഖ്ലയിലെ യുവാക്കളിലും കായികതാരങ്ങളിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്

പരീക്ഷാ തട്ടിപ്പ് സ്വതന്ത്ര ഏജൻസിയെകൊ ് അന്വേഷിപ്പിക്കണമെന്ന് കേരള ഹൈക്കോടതി

എസ്

സ്വതന്ത്ര ഏജൻസിയാണെന്നും അതുകൊ ് തന്നെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു കേസിലെ നാലാം പ്രതി സഫീർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി

എസ്

സമീപകാലത്ത് നടന്ന എല്ലാ നിയമനങ്ങളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു

ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി കവിത്രു സുനു

ഇടനാഴിയുടെ ഇന്ത്യയുടെ ഭാഗവും പാകിസ്ഥാനിൽ നിന്നുള്ള ഭാഗവും തമ്മിൽ യോജിക്കുന്ന ഭാഗമാണ് സീറോപോയിന്റ്

ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞ് ര ് കേന്ദ്രഭരണപ്രദേശങ്ങളായി വിഭജിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കവെയാണ് ചർച്ച നടന്നത്

യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനോടാണ് നിർദ്ദേശം നൽകിയത് പരീക്ഷ എഴുതാതെയും ക്സാസിൽ പങ്കെടുക്കാതെയും അംഗീകൃത സർവകലാശാലകളുടെ ബിരുദ സർട്ടിഫിക്കൂറ്റുകൾ ഏജന്റുമാർ സംഘടിപ്പിച്ച് നൽകുന്നതായി മാധ്യമ റ്റിപ്പോർട്ടുകളു ായിരുന്നു

അനധികൃത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സ്ഥാപനങ്ങളെയും വൃക്തികളെയും ക െ ത്തി കൂർശന നടപടി സ്വീകരിക്കുമെന്നും മനുഷൃവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു

ജനങ്ങൾക്ക് ലിസ്റ്റിൽ തങ്ങളുടെ പേരുകൾ വളരെ പെട്ടെന്ന് ക െ ത്താൻ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടു ്

നവസാങ്കേതികവിദ്യയുമായി ചേരുമ്പോൾ വിപണിയിൽ ഉപഭോക്താക്കൾക്ക് പ്രയ്ോജനപ്പെടുന്ന രീതിയിലും അവർക്ക് ഹാനിയു ാകുന്ന രീതിയിലും ഇ കോമേഴ്സിനെ ഉപയോഗിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

എഫ് ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ച വെച്ചു

ശിവകുമാർ നൽകിയ ഹർജി കർണ്ണങൾെ ഹൈക്കോടതി തള്ളി